ആന്ധ്രപ്രദേശ് സിക്കിം അരുണാചൽപ്രദേശ് നിയ മസഭാ വോട്ടെടുപ്പും ഇന്ന്

നരേന്ദ്ര മോദി സിനിമ പ്രദർശിപ്പിക്കു ന്നത് തിരഞ്ഞെടുപ്പ് കമ്മിഷൻ വിലക്കി കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ

മാണിക്ക് ആയിരങ്ങ ളുടെ അന്ത്യാഞ്ജലി സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഔദ്യോഗിക ബഹുമതികളോടെ പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്ഥാനത്ത് ചൂട് കനത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുടി വെള്ളം ലഭ്യമാക്കണമെന്ന് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി

ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തി പൊതുതിരഞ്ഞെടുപ്പിന് തുടക്കംകുറിച്ച് ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്

ആന്ധ്രപ്ര ദേശ് സിക്കിം അരുണാചൽപ്രദേശ് നിയമസഭാമണ്ഡലങ്ങളിലെ വോട്ടെ ടുപ്പും ഇതോടൊപ്പം നടക്കും മിക്കയിടത്തും ഏഴ് മണി മുതൽ വൈകിട്ട് ആറുവരെയാണ് പോളിങ്

ഒരുലക്ഷത്തി എഴുപതിനായിരത്തിലേറെ പോളിങ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കു ന്നത്

ആറ് പേരാണ് മത്സര രംഗത്ത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന പി

നരേ ന്ദ്രമോദി ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മിഷൻ വിലക്കി ചിത്രം ഇന്ന് റിലീസ് ചെയ്യാനിരിക്കെയാണ് കമ്മിഷൻ നടപടി ഇനിയൊര് ഉത്തരവുണ്ടാകുന്നതുവരെ ഈ ചിത്രം പ്രദർശിപ്പിക്കരുതെന്നും നിർദ്ദേശി ച്ചിട്ടുണ്ട്

നരേന്ദ്രമോദി ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരേ കോൺഗ്രസും ഇടതുപാർട്ടികളും പരാതി നൽകിയിരുന്നു സിനിമയുടെ പ്രദർശനം തടയണമെന്ന കോൺഗ്രസിന്റെ ഹർജി കഴിഞ്ഞദിവസം തള്ളിയ സുപ്രീംകോടതി സിനിമ പ്രദർശിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ടലംഘനമാണോ യെന്ന് തിരഞ്ഞെടുപ്പ് കമ്മിഷനാണ് പരിഗണിക്കേണ്ടതെന്ന് അറിയിച്ചിരു ന്നു തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെയും ആന്ധ്രാപ്ര ദേശ് മുൻ മുഖ്യമന്ത്രി എം

രാമറാവുവിന്റെയും ജീവിതകഥപറയുന്ന ചിത്ര ങ്ങൾ പ്രദർശിപ്പിക്കുന്നതും കമ്മിഷൻ വിലക്കിയിട്ടുണ്ട് നിർദ്ദേശം പാലിക്കാത്തിന് റവന്യു വകുപ്പിനെ കമ്മിഷൻ തിരഞ്ഞെ ടുപ്പ് കമ്മിഷൻ ശാസിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് റവന്യുവകുപ്പിന്റെ പ്രവർത്തനം തീർത്തും പക്ഷപാതരഹിതവും നിഷ്പക്ഷവും വിവേചനമി ല്ലാതെയും വേണമെന്ന നിർദ്ദേശം ഗൌരവത്തിലെടുക്കാതെ പ്രവർത്തിച്ചതി നാണ് ശാസിച്ചതെന്ന് കമ്മിഷൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഭരണഘ ടനാ അതോറിറ്റിയുടെ നിർദ്ദേശം പാലിക്കുന്നതിൽ കാണിച്ച വീഴ്ച അങ്ങേ യറ്റം അസന്തുഷ്ടിയുണ്ടാക്കുന്നതാണെന്ന് കമ്മിഷൻ വിലയിരുത്തി

ഈ സാഹചരൃത്തിൽ നടപടികൾ നിഷ്പക്ഷവും വിവേചന രഹിതവും ആകണമെന്ന് ഞായറാഴ്ചയാണ് കമ്മിഷൻ റവന്യുസെക്രട്ടറിക്ക് കർശന നിർദ്ദേശം നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്തും കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിങ് ന്യൂഡൽഹി യിൽ അറിയിച്ചു സഖ്യ സാധ്യതകളെല്ലാം അടഞ്ഞതായും നീക്കം ബി

യ്ക്ക് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിക്ക് മാത്രമായി ഡൽഹിയിൽ ബി

യെ പരാജയപ്പെടുത്താനാവില്ലെന്ന് ഇതി നോട് പ്രതികരിച്ച ഡൽഹിയുടെ ചുമതല വഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗം പി

ചാക്കോ പറഞ്ഞു കഴുത്തറ്റം അഴിമതിയിൽ മുങ്ങിനിന്നാണ് കോൺഗ്രസ് കുടുംബം മോദിയെ കള്ളനെന്ന് വിളിക്കുന്നതെന്ന് ബി

ദേശീയ സെക്രട്ടറി വൈ

പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം പുകമറ സൃഷ്ടിച്ച് എൻ

യെ അവ ഹേളിക്കാൻ നടത്തുന്നശ്രമം വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിക്ക് രാഹുൽ രാജ്യത്തെ ഭൂരിപക്ഷത്തെ വിശ്വാസമില്ലാതായിരിക്കുന്നുവെന്ന് ബി

പി ദേശീയ വക്താവ് ഷാനവാസ് ഹുസ്സൈൻ പറഞ്ഞു പാലക്കാട് എൻ

യുടെ തിരെഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഗവർണമെന്റ് മതവിശ്വാസങ്ങൾക്ക് എതിരാണെന്നും ആ നിലപാടിന് ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു അമേഠിയിൽ തോൽവി ഭയന്നാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സ രിക്കാൻ കാരണമെന്ന് മഹിളാമോർച്ച ദേശീയ പ്രസിഡന്റ് വിജയ രഹാ ത്കർ പറഞ്ഞു ശബരിമല വിഷയത്തിൽ വിശ്വാസിസമൂഹത്തിന്റെ കൂടെ യാണ് മോദി ഗവൺമെന്റെന്നും അവർ തിരൂരിൽ പറഞ്ഞു വയനാടിനെ പാക്കിസ്താനോട് ഉപമിച്ച് ബി

ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയ പ്രസംഗം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാ ണെന്ന് എ

ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ പറ ഞ്ഞു റാഫേലിൽ റിവ്യൂഹർജി പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി വൃക്ത മാക്കിയ സാഹചര്യത്തിൽ വിഷയത്തിൽ അഴിമതി നടന്നുവെന്നുതന്നെ വ്യക്തമായിരിക്കുകയാണെന്ന് അദ്ദേഹം കൽപ്പറ്റയിൽ പറഞ്ഞു

അധ്യക്ഷൻ അമിത്ഷാ രാഷ്ട്രത്തോട് മാപ്പ് പറയണമെന്ന് കെ

പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു രാഹുൽഗാന്ധി മത്സരിക്കുന്നു എന്ന ഒറ്റക്കാരണത്താൽ ഈ പ്രദേശത്തെ അപമാനിക്കുകയാണ് അമിത്ഷാ

എ ഫിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗെന്നും വർഗ്ഗീയതയെ ചെറുക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ലീഗിനെ ഒപ്പം നിർത്തുന്ന തിൽ കോൺഗ്രസിന് മനഃപ്രയാസം ഉണ്ടാകേണ്ട കാര്യം ഇല്ലെന്നും മുല്ല പ്പള്ളി അഭിപ്രായപ്പെട്ടു

പാലക്കാട് മണ്ഡലം യു

എഫ് സ്ഥാനാർഥിയുടെ തെരെഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഗീയ ശക്തികളെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് വിശ്വാസൃത ഇല്ലെന്ന് സി

എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു പാലക്കാട് മണ്ഡലം എൽ

എഫ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നും അദ്ദേഹം രാജ്യത്തെ മതനിരപേക്ഷതയും ജനാധിപത്യവും മോദി ഗവൺമെന്റിന്റെ ഭരണംകൊണ്ട് ഇല്ലാതായതായി സി

എം പോളിറ്റ്ബ്യൂറോ അംഗം വൃന്ദാകാരാട്ട് പറഞ്ഞു പത്തനംതിട്ട ഇളമണ്ണൂരിൽ എൽ

ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ പൂർണ ഔദ്യോഗിക ബഹുമതിക ളോടെ സംസ്കാരം നടക്കും

മാണിയുടെ ഭൌതിക ശരീരവും വഹി ച്ചുകൊണ്ട് വിലാപയാത്ര അർധരാത്രിയോടെയാണ് കോട്ടയം തിരുനക്കര മൈതാനത്ത് എത്തിയത്

മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി വി

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിമാർ എം

എ മാർ എന്നിവരും ആദരാ ഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു സംസ്ഥാനത്ത് ചൂട് കനത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കുടി വെള്ളം ലഭിക്കാത്ത സ്ഥിതിയുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ജില്ല യിലെ സ്ഥിതി കളക്ടർമാരുടെ വീഡിയോ കോൺഫറൻസിലൂടെ ചീഫ് സെക്രട്ടറി വിലയിരുത്തി വാട്ടർ അതോറിറ്റി ജലസേചന വകുപ്പുകളുടെ എൻജിനിയർമാരെ ഉൾപ്പെടുത്തി ജില്ലകളിൽ പ്രത്യേക ടീം ജില്ലാ കള ക്ടർമാർ രൂപീകരിക്കാനും തീരുമാനമായി വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ പ്രഥമ പരിഗണന നൽകണമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ ഡോ എസ്

കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ വരെ താപ നില ശരാശരിയിൽനിന്ന് രണ്ട് മുതൽ മൂന്നു ഡിഗ്രിവരെ ഉയരാൻ സാധ്യ തയുണ്ടെന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി മുന്നറിയിപ്പുനൽകി ഈ സാഹചരൃത്തിൽ സൂര്യാഘാതം ഒഴിവാക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അതോറിറ്റി അറിയിച്ചു

ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് മൂന്ന് വിക്കറ്റിന് കിങ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തി അവസാനപന്തിൽ രണ്ട് റൺസ് നേടിയ അൽസാരി ജോസഫാണ് മുംബൈയുടെ വിജയശിൽപി ഇന്ന് രാജ സ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും മലയോര വോളിബോൾ മാമാങ്കമായ സേനാപതി വോളിക്ക് ഇടുക്കി യിൽ തുടക്കമായി മൂന്ന് സംസ്ഥാനങ്ങളിലെ ഏഴ് ടീമുകളാണ് മാറ്റുരയ്ക്കു ന്നത് വള്ളുവനാടൻ ദേശീയോത്സവമായ അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതിക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ഇന്ന് നടക്കും

ജന്മദിനാഘോഷങ്ങളും സമാപന സമ്മേളനവും നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ബൈപ്പാസ് നിർമാണവുമായി ബന്ധപ്പെട്ട് കീഴാറ്റൂരിൽ കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു സ്ഥലമേറ്റെടുക്കുന്നതി നെതിരെ സമരം നടത്തുന്ന വയൽക്കിളികൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി ഗവൺമെന്റിന് മുന്നോട്ട്പോകാമെന്ന് ഹൈക്കോടതി വൃക്തമാക്കിയിട്ടുണ്ട് കല്ല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശരത്ലാലിനെയും കൃപേ ഷിനെയും കൊലപ്പെടുത്തിയ കേസില്ലെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹോസ്ദുർഗ് ഒന്നാംക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി ഒന്നാംപ്രതി പീതാം ബരനടക്കം ഒൻപത് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് കണ്ണൂർ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിങ് നടത്താൻ തീരുമാനം

ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കാൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് വയനാട് ജില്ലയിലെത്തി

മാനന്ത വാടി സുൽത്താൻബത്തേരി കൽപ്പറ്റ ലക്കിടി മീനങ്ങാടി പുൽപ്പള്ളി തൊണ്ടർനാട് എന്നിവിടങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി സേനയുടെ നേതൃത്വത്തിൽ റൂട്ട്മാർച്ച് നടത്തി കോഴിക്കോട് മണ്ഡലത്തിലെ എൽ

സ്ഥാനാർഥിയുടെ സാമ്പത്തിക സ്രോതസ്സ് അമ്പേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു

പ്രചാരണത്തിനായി കൂടുതൽ തുക ചെലവിടുന്നുവെന്ന് കാണിച്ചാണ് ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകിയത്